പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്രയിൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥാപിക്കും തനതായ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി ഉറപ്പു വരു ത്തുന്നതിന് സംസ്ഥാനത്ത് വാണിജൃ മിഷൻ രൂപീകരിച്ചു

ള ൽ ൾ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പുതവത്സര ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ മതിൽ വിജയിപ്പിക്കുന്നതിന് ഓരോ ജില്ല യിലും മന്ത്രിമാർക്ക് ചുമതല നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാ നിച്ചു

പ്രചാരണത്തിന് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ചുമതലപ്പെടു ത്താനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന ക്യോർപ്പറേഷന്റേയും ടൂറിസം വകുപ്പിന്റേയും ആഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്രയിൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനി ച്ചു പരമ്പരാഗത കരകൌശല തൊഴിലാളികളുടെ ്ഉത്പന്നങ്ങൾക്ക് സ്ഥിരം പ്രദർശന വിപണന വേദിയുണ്ടാക്കുന്നതിനും ഇക്കോ ടൂറിസം സാധൃതകൾ പ്രയോജനപ്പെടുത്തു ന്നതിനുമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്രാഫ്റ്റ് വില്ലേജ് സ്ഥാപിക്കുന്നത്

തനതായ ഉത്പ ന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി ഉറപ്പൂവരുത്തുന്നതിനും വാണി ജ്യമേഖലയിൽ സംസ്ഥാനത്തിന്റെ അനന്ത സാധ്യതകൾ കണ്ടെത്തു ന്നതിനുമാണ് സംസ്ഥാന വാണിജ്യ മിഷൻ രൂപീകരിച്ചതെന്ന് മന്ത്രി ഇ

കൊൽക്കത്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റി റ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ പ്രൊഫസർ സുശീൽ ഖന്നയാണ് കമ്മീ ഷൻ ചെയർമാൻ വാണിജൃ മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ ഗവൺമെന്റ് ഗവൺമെന്റിതര ഏജൻസികളുടെ ഏകോപനത്തിൽ ഗവൺമെന്റ നോഡൽ ഏജൻസിയായിട്ടായിരിക്കും വാണിജ്യമിഷൻ പ്രവർത്തി ക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു

വാതകം അടിസ്ഥാനമാക്കി സമ്പദ്വൃവസ്ഥ പ്രോത്സാഹിപ്പിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കു ന്നതെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി വാതകം എത്തിക്കുന്നതിന് വ്യാപകമായ പൈപ്പ് ലൈൻ ശൃംഖല ആവശ്യമാ ണെന്നും അദ്ദേഹം ഭുവനേശ്വരിൽ പറഞ്ഞു ബംഗ്ലാദേശ് വഴി മ്യാൻമാറിലേക്ക് വാതക പൈപ്പ് ലൈൻ സ്ഥാപി ക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പ്രകൃതിദത്ത തുറ മുഖങ്ങളുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ തുറമുഖ അധിഷ്ഠിത വൃവ സായ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഗവൺമെന്റിന് പദ്ധതി യുണ്ടെന്ന് ധർമേന്ദ്രപ്രധാൻ പറഞ്ഞു അഗസ്റ്റ് വെസ്റ്റ്ലാന്റ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ ഡൽഹിയിലെ പ്രത്യേക സിബിഐ കോടതി അഞ്ച് ദിവസത്തെ സിബിഐ കസ്റ്റഡിയിലെടുത്തു

ഇതിനായി ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ട റേറ്റ് കോടതിയെ സമീപിക്കുമെന്നറിയുന്നു മിഷേലിനെതിരെ പുതിയ കുറ്റപത്രവും കോടതിയിൽ സമർപിക്കും ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും നിരോ ധനാജ്ഞയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് എംഎൽ എമാരായ വി

ശിവകുമാർ പാറയ്ക്കൽ അബ്ദുള്ള ഡോ

ജയരാജ് എന്നിവർ നിയമസഭാ കവാടത്തിനു മുന്നിൽ ആരംഭിച്ച അനി ശ്ചിതകാല സത്യഗ്രഹ സമരം നാലാം ദിവസത്തിലേക്ക് കടന്നു ശബ രിമലയോട് ഗവൺമെന്റ് കാണിക്കുന്ന വിരുദ്ധ നിലപാടാണ് നിരോ ധനാജ്ഞ നീട്ടാൻ കാരണമെന്നും സമാധാനപരമായി ദർശനം നട ത്തുന്ന തീർത്ഥാടകരോടുള്ള വെല്ലുവിളിയാണ് ശബരിമലയിലേർപ്പെ ടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെന്നും എംഎൽഎമാർ പറഞ്ഞു

രാധാ കൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആരംഭിച്ച അനിശ്ചിതകാല നി രാഹാരസമരം നാലാം ദിവസവും തുടരുന്നു ശബരിമലയിലെ നിരോ ധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കുക അയ്യപ്പഭക്തർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക കെ സുരേന്ദ്രനെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശൃങ്ങളുന്നയിച്ചാണ് സമരം

കേരള പൊലീസ് കേന്ദ്രസേനകളായ എൻഡിആർഎഫ് ആർഎഎ ഫ് കമാന്റോസ് ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡ് എന്നിവരെ സന്നിധാ നത്തും പരിസരത്തും വിന്യസിച്ചിട്ടുണ്ട്

ബാബറി മസ്ജിദ് തകർത്ത ഡിസംബർ ആറിന് അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം തുടങ്ങുമെന്ന സംഘപരിവാർ പ്രഖ്യാപനത്തിലെ നിഗൂഡത തുറുന്നു കാട്ടാനാണ് സദസ് സംഘടിപ്പിക്കുന്നതെന്ന് എൽഡിഎഫ് നേതൃത്വം തിരുവനന്തപുരത്ത് അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിലും തെലങ്കാ നയിലും നാളെ വിധിയെഴുത്ത്

അഡലെയിഡിൽ ഓസ്ട്രേലിക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിങ്ങ് തകർച്ചു

രോഹിത് ശർമ്മയെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ഭുവനേശ്വറിൽ നടക്കുന്ന ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ പൂൾ ഡിയിൽ പാകിസ്ഥാൻ മലേഷ്യ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോ ഗോൾ നേടി പൂൾ ഡിയിലെ മറ്റൊരു മത്സര ത്തിൽ രണ്ട് തവണ ചാമ്പ്യൻമാരായ ജർമനി നെതർലന്റിനെ ഒന്നി നെതിരെ നാലു ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ്സി മത്സരം ഇരു് ടീമുകളും ഓരോ ഗോൾ അടിച്ച് സമനിലയിൽ പിരിഞ്ഞു

ഇന്ന് മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ്സിയെ നേരിടും രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇന്ന് തമിഴ്നാടിനെ നേരി ടും

ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം

സീസണിൽ കേരളത്തിന്റെ അഞ്ചാം മത്സരമാണിത്

നാളെ തുടങ്ങുന്ന മേള ഞായറാഴ്ച്ച സമാപിക്കും കേരള രാജ്യാന്തര ചലച്ചിത്ര മേളക്ക് നാളെ തിരുവനന്തപുരത്ത് തിരി തെളിയും

വൈകീട്ട് ആറിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യ ത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ ശുചിത്യ ബോധവൽക്കരണ പരിപാടി ഇന്നാരംഭിക്കും ഹരിതകർമ്മസേനാ വളണ്ടിയർമാർ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ പ്ങ്കെടുപ്പിച്ച് പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുന്ന ശുചീകരണ യജ്ഞത്തിനും തുടക്കം കുറിക്കും വൃക്തി ശുചിത്വം പരിസര ശുചിത്വം ഉറവിടമാലിന്യ സംസ്ക്കരണം ഇ വേസ്റ്റ് മാനേജ്മെന്റ് മാലിനൃം കുമിഞ്ഞു കൂടുമ്പോഴുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിദഗ്ധർ ക്ലാസെടുക്കും രാഷ്ട്രീയ നേട്ടത്തിനായി വനിതാ മതിൽ തീർത്ത് പൊതു ഖജ നാവിൽ നിന്നും തുക വിനിയോഗിക്കുന്നത് ഭരണഘടനാ ലംഘനമാ ണെന്ന് കോൺഗ്രസ് വക്താവ് പന്തളം സുധാകരൻ പറഞ്ഞു

കരിമ്പ തച്ചമ്പാറ കാരക്കുറിശ്ശി തെങ്കര കാഞ്ഞിരപ്പുഴ കോങ്ങാട് കേരളശ്ശേരി എന്നീ പ്രദേശങ്ങളിലെ കൃഷി വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം സംസ്ഥാനത്തെ ജില്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നടപ്പു സാമ്പത്തിക വർഷത്തെ പദ്ധതി നിബന്ധനകളോടെ ഭേദഗതി ചെയ്യാ മെന്ന് തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വാർത്താ കുറി

ചില തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപ്പുവർഷത്തെ പദ്ധതിയിൽ ഭേദഗതി അനിവാര്യമാണെന്ന് കോ ഓർഡിനേഷൻ കമ്മറ്റി യോഗം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിത് ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് ഡിഫ റന്റ്ലി ആർട്സ് സെന്റർ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ

ഇതിലൂടെ കലാകായിക മേഖലയിൽ ഭിന്നശേഷിക്കാരായ വരെ വളർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു